നാളെ കേന്ദ്രബജറ്റ് കേന്ദ്ര സർവ്വകലാശാലകളിലെ അധ്യാപ്ക് നിയ്മന സംവരണ ബിൽ പാർലമെന്റ് പാസ്സാക്കി

ജെ

രാജ്യത്തുനിന്ന് ആദ്യ ഹജ്ജ് തീർത്ഥാടകസംഘം യാത്ര തിരിച്ചു സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം മറ്റന്നാൾ കരിപ്പൂരിൽ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് സെമിയിൽ

ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇരുസഭക ളിലും അവലോകന റിപ്പോർട്ട് മേശപ്പുറത്ത് വെയ്ക്കും നാളെ യാണ് കേന്ദ്ര ബജറ്റ് സംവരണബിൽ കേന്ദ്ര സർവ്വകലാശാലകളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യാപക നിയമന് സംവരണ ബിൽ പാർലമെന്റ് പാസ്സാക്കി പട്ടികജാതി പ്രപട്ടികവർഗ്ഗ പിന്നാക്ക സമുദായങ്ങൾക്കൊപ്പം മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തിക മായി പിന്നാക്കം നിൽക്കും പത്തുശതമാനം പേർക്കും നിയമ നങ്ങളിൽ ഇതോടെ സംവരണം ലഭിക്കും നേരത്തെ പുറപ്പെടു വിച്ച ഓർഡിനൻസിന് പകരമാണ് ബിൽ ലോക്സഭ നേരത്തെ ബിൽ പാസ്സാക്കിയിരുന്നു

ജെ പി അധ്യക്ഷൻ അമിത് ഷാ പാർട്ടി പ്രവർത്ത കരോട് ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച ഔദ്യോഗിക നിർദ്ദേശം വരുംദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം അഹ മ്മദാബാദിൽ പറഞ്ഞു

ഹജ്ജ് രാജ്യത്തുനിന്ന് ആദ്യ ഹജ്ജ്സംഘം തീർത്ഥാടനത്തിന് പുറ പ്പെട്ടു

ഈ വർഷം ചരിത്രത്തിലാദ്യ മായി രണ്ടുലക്ഷം പേർ ഇന്ത്യയിൽനിന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

അടുത്ത ബന്ധുവായ് പുരുഷനോടൊപ്പമല്ലാതെ ഹജ്ജിന് പോകുന്ന സ്ത്രീകളുടെ എണ്ണം ഇരട്ടിയായതായും നഖ്വി അറിയിച്ചു ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് മറ്റന്നാൾ വൈകിട്ട് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാ ടനം ചെയ്യും ഹജ്ജ് ഹൌസിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന വനിതാ ബ്ലോക്കിന് അദ്ദേഹം തറക്കല്ലിടും

ക്യാമ്പിലെ ഹജ്ജ് സെല്ലിന് നാളെ തുടക്കമാവും ശ്രീധരൻപിളള ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം പരിഗണനയി ലില്ലെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞെന്ന വാർത്ത കൾ തെറ്റിദ്ധാരണാജനകവും ദുരുദ്ദേശൃപരവുമാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി

കോടതിയുടെ പരിഗണനയിലാണ് വിഷയം എന്നാണ് മന്ത്രി പറഞ്ഞതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വിശ ദീകരിച്ചു ശബരിമല വിഷയത്തിലെ ബി ജെ പി നിലപാട് പ്രക ടന പത്രികയിൽ വൃക്തമാക്കിയിട്ടുണ്ടെന്നും അതിലാരും സംശ യിക്കേണ്ടതില്ലെന്നും ശ്രീധരൻ പിള്ള അറിയിച്ചു

എണ്ണ ക്കുരുക്കളുടെയും പയർ പരിപ്പ് മറ്റ് ധാന്യങ്ങൾ എന്നിവയുടെ താങ്ങുവിലയും വർദ്ധിപ്പിക്കാൻ ഇന്നലെ ചേർന്ന കേന്ദ്ര മ ന്ത്രിസഭായോഗം തീരുമാനിച്ചു

ജെ പി എം

ഇന്ന് പട്ടികജാതിക്കാരായ എം പിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

പിമാരെ ഏഴ് വിഭാഗങ്ങളായി തിരിച്ചാണ് പ്രധാ നമന്ത്രി കാണുന്നത് ബിർള ഇന്ത്യൻ വൃവസായരംഗത്തെ പ്രമുഖനും ബിർള ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ ബസന്ത്കുമാർ ബിർള അന്തരി ച്ചു

സംസ്കാരം ഇന്ന് കൊൽക്കത്തയിലെ ബിർളാ പാർക്കിൽ നടക്കും പിരിച്ചുവിട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കോൺഗ്ര സ്സിന്റെ നാല് ബ്ലോക്ക് കമ്മിറ്റികൾ പിരിച്ചുവിട്ടു ചേർത്തല വയലാർ കായംകുളം നോർത്ത് കായംകുളം സൌത്ത് കമ്മി റ്റികൾക്കെതിരെയാണ് നടപടി പരാജയ കാരണം കണ്ടെത്താൻ കെ

സി സി നിയോഗിച്ച കെ വി തോമസ് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം

ഇന്നലെ രാത്രി എട്ടരയോ ടെയാണ് നവമാധ്യമങ്ങൾക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ തുട ങ്ങിയത് ചിത്രങ്ങളും വീഡിയോകളും ഡൌൺലോഡ് ചെയ്യു ന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ട് നേരിട്ടു

വാട്സ്ആപ്പിൽ ടെസ്റ്റ് മെസ്സേജുകൾ അയയ്ക്കുന്നതിനോ വായിക്കുന്നതിനോ ബുദ്ധിമുട്ടില്ല

ഇതാ ദ്യമായാണ് ഇംഗ്ലണ്ട് ലോകകപ്പ് സെമിയിലെത്തുന്നത്

ഇന്ന് അഫ്ഗാനിസ്ഥാൻ വെസ്റ്റിൻഡീസിനെ നേരിടും

തിലോത്തമൻ റേഷൻ കടകൾ വഴി കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി

റേഷൻ ഡിപ്പോകൾ വഴി ശബരി ഉത്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലം കരുനാഗപ്പള്ളി സപ്ലൈകോ ഹൈപ്പർ മാർക്കറ്റിൽ നിർവഹിക്കു കയായിരുന്നു അദ്ദേഹം

ഹൈടെക് ലാബ് സംസ്ഥാനത്തെ പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളിൽ ഹൈടെക് ലാബുകൾ തുടങ്ങുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും തിരുവനന്തപുരും ടാഗോർ തിയേ റ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിക്ക് തുടക്കം കുറി ക്കും

ഉമാദത്തിന്റെ മൃതദേഹം രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൊതു ദർശനത്തിന് വെയ്ക്കും തുടർന്ന് കരിക്കകത്തെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് സ്ഥകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം കേസെടുത്തു പീരുമേട് സബ്ജയിലിൽ റിമാൻഡിലിരിക്കെ സാമ്പത്തിക തട്ടിപ്പുകേസ് പ്രതി രാജ്കുമാർ മരിച്ച സംഭവത്തിൽ അറസ്റ്റി ലായ എസ്

ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെയാണ് ഇരുവ രെയും അറസ്റ്റ് ചെയ്തത് കസ്റ്റഡി മരണത്തിൽ ഇടുക്കി എസ് പി വേണുഗോപാലി നെതിരെ നടപടി ആവശ്യപ്പെട്ട് പി ടി തോമസ് എം എൽ എ പൊലീസ് കംപ്പെയിന്റ്സ് അതോറിറ്റി ചെയർമാന് കത്ത് നൽകി ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെന്നും കുറ്റ ക്കാരായ പൊലീസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനാണ് ശ്രമം നട ക്കുന്നതെന്നും പറയുന്നു റിമാൻഡിൽ മരിച്ച രാജ്കുമാറിന്റെ കുടുംബ്ലാംഗങ്ങളെ ബി ജെ പി കേന്ദ്ര നിർവ്വാഹക സമിതി അംഗം പി

രാജ്കുമാറിനെ മർദ്ദിച്ച രണ്ട് പൊലീസ് ഉദ്യോ ഗസ്ഥരെ മാത്രം അറസ്റ്റ് ചെയ്തതുകൊണ്ടായില്ലെന്നും തട്ടിപ്പിന് പിന്നിലെ ഉന്നതരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണ മെന്നും പി

പി ജയിലുകളിൽ എത്തിക്കുന്ന പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയാലും അവശനെന്ന് കണ്ടാൽ നിർബന്ധമായും ആശുപത്രിയിലെത്തിക്കണമെന്ന് ജയിൽ ഡി ജി പി ഋഷിരാജ് സിംഗ് സർക്കുലർ പുറപ്പെടുവിച്ചു ഡോക്ടറുടെ സാക്ഷ്യപത്രവുമായി പൊലീസ് എത്തിക്കുന്ന പ്രതികളെ വീണ്ടും പരിശോധിച്ച് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പാക്കിയ ശേഷമേ ജയിലിൽ പ്രവേശിപ്പിക്കാവൂ എന്നാണ് ഡി ജി പിയുടെ നിർദേശം

എസ് യു ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ

തിരുവനന്തപുരത്ത് കെ

യു മാർച്ചിന് നേരെയു ണ്ടായ പൊലീസ് ലാത്തിച്ചാർജ്ജിൽ പ്രതിഷേധിച്ചാണ് പഠിപ്പു മുടക്ക് ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽനിന്ന് ഗവൺമെന്റ് പിന്മാറണമെന്നാവശ്യപ്പെട്ട് എ ബി വി പി ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട് ഡി

ഇ ഓഫീസ് മാർച്ചും നടത്തും സർക്കുലർ ഗ്രാമപഞ്ചായത്തുകളിലെ കെട്ടിട നിർമ്മാണ അനുമതി സംബന്ധിച്ച പരാതികളിൽ അദാലത്തിന്റെ നടപടി ക്രമങ്ങൾ നിശ്ചയിച്ച് ഗവൺമെന്റ് സർക്കുലർ പുറപ്പെടുവിച്ചു ഗ്രാമപ ഞ്ചായത്ത് തലത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന അപേക്ഷക ളിൽ ഈ മാസം പത്തിനകം നടപടികൾ തീർപ്പാക്കി മൂന്നുദി വസത്തിനകം അപേക്ഷകരെ വിവരം അറിയിക്കേണ്ടതാണ്

സി തോമസ് പ്രധാനമന്ത്രിയുടെ ജനകീയ പദ്ധതികളുടെ പ്രയോജനം സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്ക് ലഭിക്കാതിരിക്കാൻ നീക്കങ്ങൾ നടക്കുന്നതായി എൻ

എ ദേശീയ സമിതി അംഗവും കേരളാ കോൺഗ്രസ് ചെയർമാനുമായ പി സി തോമസ് കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് മെഡി ക്കൽ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തടസ്സം നിന്നതുമൂലം ഒരാൾക്കുപോലും അതിന്റെ പ്രയോജനം ലഭിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

എസ് ആർ ടി

ചരമഠ കേരള ഹിസ്റ്ററി അസോസിയേഷൻ വൈസ് പ്രസിഡന്റും സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ട്രഷററും ചരിത്രകാരനു മായ പ്രൊഫ

എ ഇബ്രാഹിംകുട്ടി കൊച്ചിയിൽ നിര്യാതനാ യി കബറടക്കം രാവിലെ കലൂർ തോട്ടത്തുംപടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും

പുതിയ തീയതി പിന്നീട് അറിയിക്കും

കൊല്ലം ചടയമംഗലം സ്വദേശികളായ ഇവരിൽനിന്ന് രണ്ടുകി ലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു